ഒറ്റക്കെട്ടായി നേരിടണമെന്ന് പ്രധാനമന്ത്രി സ്വയം പര്യാപ്ത ഇന്ത്യ എന്ന ലക്ഷ്യത്തിനായി കൂട്ടായ പ്രയത് നം വേണമെന്നും നരേന്ദ്രമോദി

ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നിന്റെ ഭാഗമായി കേന്ദ്രം ഫീഡ് ബാക്ക് കോൾ സെന്റുകൾ പ്രവർത്തനം ആരംഭിക്കും

തുടരുന്നു കോൺഗ്രസ് എം എൽ എമാരെ ജയ്പൂരിലെ റിസോർട്ടിലേക്ക് മാറ്റി

ലോകം കൊറോണക്കെതിരായി പോരാടുമ്പോൾ ഇന്ത്യയും ഇതേ പാതയിലാണ് എന്നാൽ ഭക്ഷ്യ പ്രതിസന്ധി വെട്ടുകിളി ശല്യം ഭൂകമ്പം ചുഴലിക്കാറ്റ് തുട്ടങ്ങിയ വെല്ലുവിളികളും ഇന്ത്യക്ക് നേരിടേണ്ടി വരുന്നുണ്ട്ട്ട് ക്വില്ലുവിളികളെ അവസരമാക്കി മാറ്റാൻ ഓരോ പൌരനും ശ്രമിക്ക്ണ്ടെതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

നിയമം പ്രാബലൃത്തിലാകുന്നതോടെ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ മാന്യമായ വിലയിൽ വിൽക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

സ്വയം പര്യാപ്ത ഇന്ത്യ എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ കൂട്ടായ പ്രയത്നം വേണമെന്നും അദ്ദേഹം പറഞ്ഞു

അമേരിക്കൻ ഏജൻസിയായ ഫിച്ച് റേറ്റിംഗിന്റെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് നടപ്പു സാമ്പത്തികവർഷം രാജ്യത്തെ ആഭ്യന്തര ഉൽപാദനത്തിൽ അഞ്ച് ശതമാനത്തിന്റെ കുറവുണ്ടാകാനും സാധ്യതയുണ്ട് ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് ബി

കോവിഡാനന്തര ലോകത്തെ ഇന്ത്യ ഇസ്രായേൽ സഹകരണത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ടെലിഫോൺ സംഭാഷണം നടത്തിയതായും ശ്രീ മോദി ട്വിറ്ററിൽ കുറിച്ചു വീണ്ടും ഇസ്രയേൽ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട നെതന്യാഹുവിന് ശ്രീ

ഇരുപക്ഷവും തൃമ്മിലൂളള ആശയവിനിമയം തുടരും

കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം ഇക്കുറി ഡിജിറ്റൽ രൂപത്തിലാണ് യോഗദിനം ആചരിക്കുന്നത് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്ത മൈ ലൈഫ് മൈ യോഗ എന്ന വീഡിയോ ബ്ലോഗിംഗ് മത്സരത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു

രോഗമുക്തി നേടിയവരുടെ എണ്ണത്തിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണത്തെ മറികടക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞു

പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ നിയമസഭാ അംഗങ്ങളെ കോൺഗ്രസ് ജയ്പൂരിലെ ഒരു റിസോർട്ടിലേക്ക് മാറ്റി

എൽഎമാരിൽ സംസ്ഥാന മന്ത്രിസഭയിളല്ല അംഗങ്ങൾക്ക് ് പുറമേ സ്വതന്ത്ര അംഗങ്ങളുമുണ്ട് മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിന്റെ വസതിയിൽ വിളിച്ചു ചേർത്ത യോഗത്തിനു ശേഷമാണ് എം

എമാരെ റിസോർട്ടിലേക്ക് മാറ്റിയത്

എമാരുമായി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പാർട്ടി വക്താവ് രൺദീപ് സൂർജേവാല എന്നിവർ പ്രത്യേക കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു രാജസ്ഥാനിൽ ഭരണ കക്ഷി എംഎൽഎ മാരെ സ്വാധീനിക്കാനും ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി രാജസ്ഥാൻ സർക്കാർ ചീഫ് വിപ്പ് മഹേഷ് ജോഷിയുടെ ആരോപണം

മൂതിർന്ന കോൺഗ്രസ് നേതാക്കളായ രൺദീപ് സിംഗ് സൂർജേവാല കെ സി വേണുഗോപാൽ എന്നിവർ ഇവിടെ മത്സരിക്കുന്നുണ്ട്

എമാരാണ് ഭരണകക്ഷിയായ കോൺഗ്രസിനുള്ളത്

സ്വർണ്ണത്തിന് റെക്കോർഡ് വില

എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലെർട്ട് പ്രഖ്യാപിച്ചു